രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഇടങ്ങളിൽ വോട്ടെടുപ്പ് ആറ് വരെ ഇന്ന് നിശബ്ദ പ്രചാരണം

വട്ട ശ്രമങ്ങളിൽ മുന്നണിക്ൾ ഇരട്ടവോട്ട് ഒഴിവാക്കാ്ൻ പ്രത്യേക ക്രമീകരണം ന് ഇരട്ടവോട്ട് പട്ടികയ്യിലുള്ള്വർ പ്രത്യേക സത്യവാങ്മൂലം നൽകണം

സ്ഥിരീകരിച്ചു രണ്ടാം തരംഗ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെ നാളെ വോട്ടെടുപ്പ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നാളെ വോട്ടെടുപ്പ്

അസമിലും പശ്ചിമ ബംഗാളിലും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പും നാളെ നടനും തിരക്കഥാ കൃത്തുമായ പി

അന്തരിച്ചു

മാവോയിസ്റ്റ് ഭീഷണിയുള്ള മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ ഏറനാട് നിലമ്പൂർ വണ്ടൂർ കൊങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിൽ വൈകിട്ട് ആറുമണിവരെ മാത്രമാണ് വോട്ടെടുപ്പ്

കോവിഡ് പശ്ചാത്തലത്തിൽ ഓരോ ബൂത്തിലെയും പ്പോട്ടർമാരുടെ എണ്ണത്തിൽ നിയന്ത്രണമേർപ്പെടുത്തിയതോടെ കഴിഞ്ഞ തവണത്തെക്കാൾ പോളിങ് ബൂത്തുകളുടെ എണ്ണം വർധിച്ചിട്ടുണ്ട്

കോവിഡ് രോഗികൾക്കും സമ്പർക്ക പട്ടികയിലുള്ളവർക്കും അവസാന മണിക്കൂറിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട്

ഇതിനായി എല്ലാ ബൂത്തുകളിലും ബ്രെയ്ൽ ലിപിയിൽ തയ്യാറാക്കിയ ഡമ്മി ബാലറ്റ് പേപ്പറും സജ്ജീകരിക്കും

കൊട്ടിക്കലാശമില്ലാതെ പ്രചാരണത്തിന് കൊടിയിറങ്ങിയതോടെ സംസ്ഥാനത്ത് ഇന്ന് നിശ്ശബ്ദ പ്രചാരണം വോട്ടർമാരെ നേരിട്ടുകണ്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാന വട്ട തിരക്കിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഭവന സന്ദർശന പരിപാടികളിലാണ് ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകൾ തങ്ങളുടെ പക്ഷത്താക്കാനുള്ള നീക്കമാണ് അവസാന നിമിഷം മുന്നണികൾ നടത്തുന്നത്

അതീവ സുരക്ഷയോടെയാണ് കൃൺട്ട്രോൾ യൂണിറ്റ് ബാലറ്റിങ്ങ് യൂണിറ്റ് വി

ഇതിനോടൊപ്പം സി സി ടി

വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് വിരലിൽ തേയ്ക്കുന്ന മഷി ഉണങ്ങിയതിനുശേഷം മാത്രമേ പുറത്തിറങ്ങാവൂ ഇരട്ടവോട്ടുള്ളവർ ഒരിടത്തു മാത്രമേ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് സത്യവാങ്മൂലം നൽകണം

പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ്

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് സംസ്ഥാന കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുമേഖലാ കമ്പനികൾ നൽകുന്ന സർവ്വീസ് തിരിച്ചുറിയൽ കാർഡുകൾ ബാങ്ക്പോസ്റ്റ് ഓഫീസിലെ ഫോട്ടോ പതിച്ച പാസ്ബുക്ക് പാൻ കാർഡ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന്റെ സ്മാർട്ട് കാർഡ് തൊഴിൽപദ്ധതി ജോബ് ിക്ടാർഡ് കേന്ദ്ര സർക്കാർ ആരോഗൃ മന്ത്രാലയ്ട്ടത്തിന്റെ ആരോഗൃ ഇൻഷുറൻസ് കാർഡ് ഫോട്ടോ പ്രതിച്ച് പെൻഷൻ കാർഡ് ഇവയിലൊന്ന് വോട്ട് ചെയ്യാൻ ഒപ്പം കരുതുക

മാസ്ക് ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക കൈകൾ സാനിറ്റൈസറോ സോപ്പോ ഉപയോഗിച്ച് വൃത്തിയാക്കുക എന്നിവ കർശനമായി പാലിക്കണം തെർമൽ സ്കാനിങ്ങിൽ ശരീര ഊഷ്മാവ് കൂടുതലാണെങ്കിൽ വൈകിട്ട് ആറ് മണിക്ക് ശേഷം വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്

മൂന്നര ലക്ഷത്തോളം വരുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകും കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥർക്കൊപ്പം കേന്ദ്രസേനയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ചുമതലയ്ക്കുണ്ട്

ഇതിനായി വിപുലമായ സജ്ജീകരണങ്ങൾ ബൂത്തുകളിലും കൺട്രോൾ റൂമിലും പൂർത്തിയായിക്കഴിഞ്ഞു

അവകാശം പോർട്ടൽ വോട്ടർ പട്ടികയിൽ പേരും ബൂത്തും കണ്ടെത്താൻ സഹായവുമായി അവകാശം പോർട്ടൽ എല്ലാ ആളുകൾക്കും വോട്ടവകാശം ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടം രൂപകൽപ്പന ചെയ്ത പോർട്ടലിൽ വോട്ടർക്ക് തന്റെ പോളിംഗ് സ്റ്റേഷൻ കണ്ടുപിടിക്കാനുള്ള ലൊക്കേറ്റ് ബൂത്ത് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്

ദേശീയ നേതാക്കളുടെ ബലപരീക്ഷണമെന്ന ഖ്യാതി നേടിയ മത്സരമായി മാറിയിരിക്കയാണ് മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പ്

ഡി എഫിനായി മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് എം

എൽഡിഎഫ് സ്ഥാനാർഥി എസ്എഫ്ഐ ദേശീയ പ്രസിഡന്റ് വി

തെരഞ്ഞെടുപ്പിന് ശേഷം പ്പോളിംഗ് ഉദ്യോഗസ്ഥർ പിറ്റേന്നാകും മടങ്ങിയെത്തുക കൂടുതൽ വ്യിവ്രങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

സ്വർണ്ണവിലയിൽ മാറ്റമില്ല